എസ് ആർ ടി

ഇതു സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണപ്രദേശങ്ങൾക്കും ഗതാഗത മന്ത്രാലയം മാർഗ നിർദ്ദേശം നൽകി പെർമിറ്റ് ഫീസ് നികുതി രേഖകൾ പുതുക്കൽ എന്നിവയ്ക്കുള്ള സമയമാണ് നീട്ടിയത്

എസ് ആർ ടി സി ബസ്സുകളിൽ ഇപ്പോഴ്ളത്ത നിരക്ക് തുടരുമെന്ന് മന്ത്രി എ

ബസ് നിരക്ക് തീരുമാനിക്കാൻ നിയോഗിച്ച് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ട് രണ്ടാഴ്ചക്ക്ക്ക് ലഭിക്കും

എസ് ആർ ടി സി ബസ്സുടമകൾ പൊതുജനങ്ങൾ എന്നിവരെ സമരസപ്പെടുത്തി സർക്കാർ റിപ്പോർട്ടിൽ നിലപാട് എടുക്കുമെന്നും മന്ത്രി അറിയിച്ചു

മലപ്പറം ഈസ്റ്റ് കോഡൂർ സെയ്തല്ലൂറ്റി കു്വൈത്തിലും കടലുണ്ടി ആനങ്ങാടി സ്വദേശി അബ്ദുൾ ഹ്ലമീദ്ട് റി്യാദിലും മഞ്ചേരി സ്വദേശി അബ്ദുൾ ലത്തീഫ് ദമാമിലുമാണ് മർണമടഞ്ഞത് മേഴ്സിക്കുട്ടിയമ്മ കൊല്ലപ് കൊല്ലം ജില്ലയിൽ സമ്പർക്കം വഴിയുള്ള രോഗവ്യാപന സാധൃത വളരെ വിരളമാണെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ജെ

എങ്കിലും അതീവ ജാഗ്രത തുടരണം കല്ലുവാതുക്കൽ കാവനാട് കുളത്തൂപ്പുഴ ചാത്തന്നൂർ എന്നിവിടങ്ങളിൽ രോഗം വന്നവരുമായി അടുത്തിടപഴകിയവരുടെ സാമ്പിളുകൾ നെഗറ്റീവായത് ആശ്വാസകരമാണെന്നും മന്ത്രി പറഞ്ഞു

വടക്കേകാട് അടാട്ട് അവണൂർ ചേർപ്പ് തൃക്കൂർ എന്നീ പഞ്ചായത്തുകളാണ് കണ്ടൈൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചത്

മൂന്ന് പേരുടെ രക്തം വീണ്ടും പരിശോധിക്കും ഇന്ന് മാധ്യമ പ്രവർത്തകരുടെയും പോലീസുകാരുടെയും രക്ത പരിശോധന നടക്കും

അഞ്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ലണ്ടനിൽ നിന്നുമുള്ള വിമാനങ്ങളാണ് ഇവ കോഴിക്കോട്ട് മസ്ക്കറ്റ് ദോഹ എന്നിവിടങ്ങളിൽ നിന്നും കണ്ണൂരിൽ ദമാമിൽ നിന്നും ഇന്ന് രാത്രി വിമാനങ്ങൾ എത്തും

രോഗലക്ഷണങ്ങൾ ഉള്ളവരെ നിരീക്ഷണത്തിനായി മാങ്ങോട് കേരള മെഡിക്കൽ കോളെജ് ഒറ്റപ്പാലം മണ്ണാർക്കാട് താലൂക്കാശുപത്രികളിൽ പ്രവേശിപ്പിക്കുമെന്നും മന്ത്രി എ

ബാലൻ പറഞ്ഞു

ശൈലജ പറഞ്ഞു

പദ്ധതി ഉപേക്ഷിച്ചതായി മന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

കഴിഞ്ഞ വർഷമാണ് ഐ

ഐ

സംഭവത്തിൽ തമ്പിയുടെ മകൻ അശ്വിൻ അറസ്റ്റിലായി അയൽവാസിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു

മർദനത്തിൽ പരിക്കേറ്റ ജയമോഹൻ തമ്പിയെ രണ്ടു ദിവസത്തിനുശേഷമാണ് മരിച്ചു നിലയിൽ കണ്ടത് നിതിൻ കോഴിക്കോട് കഴിഞ്ഞ ദിവസം ദുബായിൽ മരിച്ച കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി നിതിന്റെ മൃതദേഹം ഭാരൃ ആതിരയെ കാണിച്ചശേഷം സംസ്കാരത്തിനായി സ്വദേശത്തേയ്ക്ക് കൊണ്ടുപോയി ഗർഭിണിയായ ഭാര്യ ആതിരയെ നേരത്തെ നാട്ടിലേയ്ക്ക് അയച്ചശേഷം ദുബായിൽ തന്നെ തുടരുന്നതിനിടെയായിരുന്നു മരണം നിതിന്റെ ഭാര്യ ആതിര ഇന്നലെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അന്തരിച്ചു കോവിഡ് ബാധിച്ച് പ്പെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജെ

എൽ

തമിഴ്നാട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ച ആദ്യ ജനപ്രതിനിധിയാണ് അൻപഴകൻ

ഡൽഹിയിൽ പുത്രൻ അൽഫോൺസിന്റെ കൂടെയായിരുന്ന ബ്രിജിത് ജോസഫ് ന്യുമോണിയ ബാധയെ തുടർന്ന് എയിംസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ